തിരുവനന്തപുരത്ത് നിയന്ത്രണം കർശനമാക്കുമെന്ന് മ ന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കൊച്ചി നഗരത്തിൽ ട്രി പ്പിൾ ലോക്ഡൌൺ ആവശ്യപ്പെട്ടില്ലെന്ന് മേയർ സൌമി നി ജയിൻ

പൊതുസ്ഥലങ്ങളിൽ തുപ്പു്ന്നുത് വിലക്കി പകർച്ചവ്യാധി നിയമം ഭേദഗതി ചെയ്ത് വിജ്ഞാപനമിറക്കി

പ്രവാസി പുനരധിവാസ പദ്ധതി പ്രകാരം വായ്പ നൽകുന്നതിന് നോർക്ക റൂട്ട്സുമായി കേരള ബാങ്ക് ധാരണപത്രം ഒപ്പുവച്ചു

സംസ്ഥാനത്ത് മഴ തുടരും കണ്ണൂർ കാസർകോട് ജില്ല കളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട്

പൂവന്തുരുത്ത് സ്വദേശിയാണ് മരിച്ചത് സാമ്പിൾ പരിശോധനക്ക് അയച്ചു ഫലം വന്ന ശേഷമേ മൃതദേഹം സംസ്കാരത്തിനായി വിട്ടു നൽകു എന്ന് ജില്ലാ അധികൃതർ അറിയിച്ചു

ഓൺലൈൻ ഭക്ഷണഷ്ടിത്തുർണക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചത് നഗരത്തിൽ ആശങ്ക ഉണർത്തിയിട്ടുണ്ട് ഈ സാഹചരൃത്തിൽ എല്ലാ ഡെലിവറി ബോയ്സിനെയും രണ്ടുദിവസം കൊണ്ട് ആന്റിജൻ ടെസ്റ്റിന് വിധേയരാക്കുമെന്നും മന്ത്രി പറഞ്ഞു

തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാളയം മാർക്കറ്റിനോട് ചേർന്നുള്ള വാണിജ്യ മേഖലയിൽ പൊതുജനങ്ങൾ കടുത്ത ജാഗ്രത പാലിക്കണമെന്നും അത്യാവശൃങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്നും കളക്ടർ നിർദ്ദേശിച്ചു

നഗരത്തിൽ പരിശോധനകൾ ശക്തമാക്കുമെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു

ജനങ്ങളുടെ ശ്രദ്ധക്കുറവാണ് ഉറവിടമറിയാത്ത കോവിഡ് കേസുകൾ ഉണ്ടാവാൻ കാരണമെന്നും കൊച്ചി മേയർ പറഞ്ഞു

ജില്ലാ കലക്ടർ കെ ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം

പൊതുസ്ഥലത്തോ റോഡിലോ ഫുട്പാത്തിലോ തുപ്പരുത് എന്നും വിജ്ഞാപനത്തിലുണ്ട്

ഇന്നലെ ഉച്ചയ്ക്കാണ് ഇയാൾ ഇവിടെനിന്നും കടന്നത് ബസ് യാത്രക്കിടെയാണ് പൊലീസ് പിടികൂടിയത്

സിറ്റിയിലെ ഓരോ പോലീസ് സ്റ്റേഷൻ അതിർത്തിയും നാല് സെക്ടറുകളാക്കി തിരിച്ച് പട്രോളിംഗ് ശക്തിപ്പെടുത്തും

ഇതുവരെ നാലു ലക്ഷത്തി പതിനായിരത്തോളം പേർ സുഖം പ്രാപിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

ഇ കിറ്റുകൾ ഉൾപ്പെടെയുളള സുരക്ഷാ ഉപകരണങ്ങളും ഭക്ഷണവും ലഭ്യമാക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി

ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്